നൃ്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജൃത്തെ അഭിസംബോധന ചെയ്തു

നരേന്ദ്രമോദി

ദീർഘകാലമായി കാത്തിരുന്ന ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ മുനമ്പിലാണ് രാജ്യമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

മേജർ ആദിത്യയ്ക്കും ഔറംഗസീബിനും ശൌര്യചക്ര

പ്രളയക്കെടുതികൾ വ്യാപകം ഏഴ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം

ലോകത്ത് തന്നെ ഏറ്റവും ബൃഹത്തായ ഗവൺമെന്റ് സഹയാത്തോടെ നടപ്പാക്കുന്ന പദ്ധതി പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാദ്ധ്യായയുടെ ജന്മവാർഷിക ദിനത്തിലാണ് തുടക്കം കുറിക്കുക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ പാവപ്പെട്ടവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിയാൽ മാത്രമേ ഇന്ത്യയ്ക്ക് വികസന കുതിപ്പ് സാധ്യമാക്കാനാകൂവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി അരുൺകുമാർ

സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നീതി ഉറപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും ഇത് ലക്ഷ്യത്തിലേയ്ക്ക് അടുക്കുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി നിരവധി വർഷങ്ങളായി പരിഗണിക്കപ്പെടാതിരുന്ന ചരക്ക് സേവന നികുതി കഴിഞ്ഞ വർഷം പാസാക്കാനായത് മികച്ചു നേട്ടമാണ്

വൺ റാങ്ക് വൺ പ്പിൻഷൻ എന്ന സൈനികന്റെ ദീർഘകാല ആവശ്യം നടപ്പാക്കാനായിരും നേട്ടമായതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച കാലവർഷമാണ് ലഭിച്ചത് എന്നൂാൽ വിവിധ സംസ്ഥാനങ്ങൾ പ്രളയക്കെടുതി നേരിടുകയാണ്ണിന്നും ദുരിതമനുഭവിക്കുന്നവരുടെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടൂംബത്തിന്റെയും ആശങ്കകൾ പങ്കുവയ്ക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

പ്രൌഡ ഗംഭീര സദസിനെ സാക്ഷിയാക്കി പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തി

സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം കേഡറ്റുകൾ ദേശീയ ഗാനവും ദേശഭക്തി ഗാനങ്ങളും ആലപിച്ചു

നഗരത്തിലുടനീളം എഴുപതിനായിരം സുരക്ഷ സൈനികരെയാണ് വിന്യസിച്ചിരുന്നത് സുപ്രധാന മേഖലകളിൽ സിസിടിവി സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു

സുരക്ഷ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു

എല്ലാവർക്കും വീട് വൈദ്യുതി വെളിയിട വിസർജ്ജന നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ ലക്ഷൃങ്ങൾ നേടാനുളള ശ്രമത്തിലാണ് ഇന്തൃ സ്വാതന്ത്രൃം നേടി തന്ന മഹാരഥന്മാരുടെ സ്വപ്നം സഫലീകരിക്കാൻ രാജ്യം ഒന്നാകെ യത്നിക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു വനിതകൾക്ക് സുപ്രധാന സ്ഥാനം നൽകുന്ന സംസ്കാരമാണ് നമുക്കുളളത്

കരസേനയിലെ വിശിഷ്ട സേവനത്തിന് മേജർ ആദിയ കുമാറിനും റൈഫിൾമാൻ ഔറംഗസേബിനും ശൌര്യചക്ര ലഭിക്കും റൈഫിൾമാൻ ഔറംഗസേബിന് മരണാനന്തര ബഹുമതിയായാണ് ശൌര്യചക്ര നൽകുക ഈ വർഷം ജൂണിൽ ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഔറംഗസേബ് രക്തസാക്ഷിയായത് കരസേന ജവാനായിരുന്ന വ്രഹ്മ പാൽ സിംഗിന് മരണാനന്തരമായി കീർത്തിചക്ര പ്രഖ്യാപിച്ചു

തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും എന്നാൽ നാട് ഒരുമിച്ചതിനാൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി

ഇന്നലെ വൈകിട്ട് ആരംഭിച്ച തുടർച്ചയായ മഴ തെക്കൻ ജില്ലകളെയും ദുരിതത്തിലാഴ്ത്തി നദികളിൽ ജലവിതാനം അപകടകരമാം വിധം ഉയർന്നിട്ടുണ്ട്

അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഒരു ദിവസം കൊണ്ട് മൂന്നര കും വ അടിയോളമാണ് ഉയർന്നത്

ചെറുത്തോണി പെരിയാർ അണക്കെട്ടിന്റെ അടച്ച രണ്ട് ഷട്ടറുകൾ വീണ്ടും തുറന്ന്തോടെ നദിയിലെ ജലനിരപ്പ് ഉയരുകയാണ്

വയനാടും മാട്ടുപെട്ടി ഡാം തുറന്നതോടെ മുതിരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന മൂന്നാറും ഒറ്റപ്പെട്ടി നില്യിലാണ്

കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലും മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലും ഗതാഗതം നിരോധിച്ചു എല്ലയ്ക്കൽ പളളിക്ക് മുകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ കുഞ്ചിതണ്ണി ആടിയാനിയിൽ വീട്ടമ്മയെ കാണാതായി

കണ്ണൂർ ആറളം കൊട്ടിയൂർ മേഖലയിൽ നാലിടത്ത് ഉരുൾപൊട്ടലുയണ്ടായി

ആലപ്പുഴയിൽ കൈനകരി ചമ്പകുളം പുളിങ്കുന്ന് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെളളം കയറി ആലപ്പുഴ ചങ്ങാനാശേരി റോഡിൽ വീണ്ടും വെളളം കയറിയ നിലയിലാണ്

വിമാനത്താവളത്തിന്റെ പുറത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നാണിത്

ഇന്നലെ കാക്കനാട് പടമുകളിലെ ചെമ്മനം വീട്ടിൽ അർദ്ധരാത്രിയോടെയാണ് അന്ത്യം കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

ഗവൺമെന്റ ഓഫീസുകളിലെ ജനവിരുദ്ധ ഇടപെടലുകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകളെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കാവൃവിമർശനങ്ങൾ മർമ്മത്ത് തന്നെ കൊള്ളുന്നവയായിരുന്നു ആളില്ലാ കസേരകൾ എന്ന കവിത ഏറെ പ്രശസ്തമായിരുന്നു

കുഞ്ചൻ നമ്പ്യാർ പുരസ്ക്കാരം മഹാകവി ഉള്ളൂർ കവിതാ അവാർഡ് തുടങ്ങി നിരവധി പുരസ്ക്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി വിളംബരം കനകാക്ഷരങ്ങൾ ചിന്തേര് ധർമ്മസങ്കടം ഒറ്റയാൾ പട്ടാളം തുടങ്ങിയ കവിതാ ഗ്രന്ഥങ്ങളും ചക്കര മാമ്പഴ്രൂ നെറ്റിപ്പട്ടം എന്നീ ബാലസാഹിത്യ കവിതകളും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്

കിഞ്ചന വർത്തമാനം കാണാ മാണികൃം ചിരിമലിയാളം ചിരിവിരുന്ന് തുടങ്ങിയ ഹാസ്യ സാഹിത്യ ഗ്രന്ഥങ്ങളും നിരവിധി ലേഖന സമാഹാരങ്ങളും അദ്ദേഹം രചിച്ചു

ബി ഐ